ഇന്ത്യ ചൈന നാലാം ഘട്ട കമാൻഡർ തല ചർച്ച ലഡാക്കിലെ ചുഷുൽ ബോർഡർ പോസ്റ്റിൽ ആരംഭിച്ചു അതിർത്തിയിൽ നിന്നും സൈനൃത്തെ പിൻവലിക്കുന്നത് അജണ്ട

രാജസ്ഥാനിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു

ബംഗളൂരു അർബൻ റൂറൽ ജില്ലകളിൽ ഇന്ന് രാത്രി എട്ട് മുതൽ ഒരാഴ്ചത്തേക്ക് ലോക്ഡൌൺ

കോവിഡ് സ്ഥിതിഗതികൾ മോശമായി തുടരുമെന്ന് ലോകാരോഗ്യ സംഘടന

ദേശീയ സ്റ്റുൽക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും ചൈനീസ് വിദേശകാർട്ട് മ്ന്തി വാങ് യിയും തമ്മിൽ ഈ മാസം അഞ്ചിന് നടന്ന സംഭാഷണത്തിന് ശേഷമുള്ള ചർച്ചയാണ് ഇന്നത്തേത് മേഖലയിലെ സമാധാനം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും സേനാ പിന്മാറ്റത്തിന് കഴിഞ്ഞ ചർച്ചയിൽ ധാരണയായിരുന്നു

അതിർത്തിയിലെ ഫിംഗർ ഫോറിൽ നിന്നും പാങ്ഗോങ് സോ ഡീപസാംഗ് പ്രദേശം എന്നിവിടങ്ങളിൽ നിന്നും പൂർണ്ണമായി സൈനൃത്തെ പിൻവലിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഇന്നത്തെ ചർച്ചയെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രാഥമിക ആരോഗൃ രംഗത്തായിരിക്കും പൊതുജനാരോഗൃത്തിന് വേണ്ടിയുള്ള ധനവിനിയോഗത്തിന്റെ മൂന്നിലൊന്ന് ശതമാനവും ചെലവഴിക്കുക

രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ പൊതുജനാരോഗൃ മേഖല രോഗ പ്രതിരോധം എന്നിവയ്ക്ക് ഊന്നൽ നൽകണമെന്നും കേന്ദ്രമന്ത്രി ധനകാര്യിക്കമ്മീഷൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു

ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ ചടങ്ങിൽ സംബന്ധിക്കും

ഈ വാഹങ്ങൾക്ക് രജിസ്ട്രേഷനോ ഡ്രൈവിങ് ലൈസൻസോ നിർബന്ധമാക്കരുതെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും മന്ത്രാലയം നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം കത്ത് അയച്ചു

മുഖ്യമന്ത്രി അശോക് ഗഹ്ലോട്ട് കോൺഗ്രസ് നേതാക്കളായ കെ

എല്ലാ എം എൽ എ

അതിനിടെ മുതിർന്ന ബി ജെ പ്പി ിനേതാക്കളുടെ യോഗവും രാജസ്ഥാനിൽ അല്പസമയത്തിനുക് ചേരും

പാർട്ടി് വിരുദ്ധ നടപടികളിൽ പങ്കാളികളായ അംഗങ്ങൾക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയൻ എന്നിവർ സംയുക്തമായി യോഗത്തിൽ അധൃക്ഷത വഹിക്കും കോവിഡ് മഹാമാരി വ്യാപാരത്തിനും ജനങ്ങളുടെ സഞ്ചാരത്തിനും എങ്ങനെ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നത് യോഗം ചർച്ച ചെയ്യും

കർണാടകയിൽ രോഗബാധിതരുടെ എണ്ണം അതിവേഗം ഉയരുകയാണ്

കോവിഡ് വ്യാപനത്തെ തുടർന്ന് ബംഗളൂരു അർബൻ റൂറൽ ജില്ലകളിൽ ഇന്ന് രാത്രി എട്ട് മുതൽ ഒരാഴ്ചത്തേക്ക് ലോക്ഡൌൺ പ്രഖ്യാപിച്ചു

പൊതുഗതാഗതം ഉണ്ടാകില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മരുന്ന് പരീക്ഷണത്തിന് തയ്യാറാണെന്ന് അറിയിച്ച് നിരവധി പേരാണ് എയിംസുമായി ബന്ധപ്പെട്ടത്

ൃ ആത്മവിശ്വാസത്തിന് ഇടമില്ല്യുന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് പോസിറ്റീവിാക്കുന്ന നിരക്കും മരണ നിരക്കും കുറഞ്ഞു വരുന്ന സാഹചരൃത്തിലാണ് ശ്രീ

പഞ്ചായത്തിലെ മുഴുവൻ ജീവനക്കാരോടും കൊവിഡ് പരിശോധനക്ക് വിധേയരാകാനും ഡെപ്യൂട്ടി ഡയറക്ടർ ആവശ്യപ്പെട്ടു

പാകിസ്ഥാൻ ഖസാകിസ്ഥാൻ ഹോൺഡുറസ് ഉസ്ബക്കിസ്ഥാൻ ബൊളീവിയ തുടങ്ങിയ രാജ്യങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്

പല രാജ്യങ്ങളിലും വൈറസ് വൃാപനം രൂക്ഷമായി തുടരുന്നതായി ലോകാരോഗൃ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് വൃക്തമാക്കി മഹാമാരിക്കെതിരെ പൊരുതാൻ ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹം ലോക രാജ്യങ്ങളോട് ആഹ്വാനം പകുതിയിലേറെ കേസുകളും അമേരിക്കയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

സ്വർണ വില കുറഞ്ഞു